ബംഗാൾ ഉൾക്കടലിൽ രൂപംകൊണ്ട് ന്യൂനമർദ്ദം ശക്തിപ്രാ പിച്ച് ഫാനി ചുഴലിക്കാറ്റായി ചൊവ്വാഴ്ച ആന്ധ്രാ തമി ഴ്നാട് തീരം കടക്കൂം കേരളത്തിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യത് കേരളമടക്കം ഏഴ് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഭീകരാക്രമണം ഉണ്ടാകുമെന്ന സന്ദേശം വ്യാജമെന്ന് തെളി ഞ്ഞു

ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഹൈദ്രബാദ് രാജസ്ഥാൻ പോരാട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വോട്ടെടുപ്പ് നട ക്കുന്ന മണ്ഡലങ്ങളിൽ പരസൃ പ്രചാരണം വൈകീട്ട് അവസാ നിക്കും

ബീഹാർ ജമ്മുകൾമീർ ജാർഖണ്ഡ് മധ്യപ്ര ദേശ് രാജസ്ഥാൻ ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര ഒഡീഷ സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളാണ് വിധിയെഴുതുന്നത്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധിയും പ്രചാരണ പരിപാടികളിൽ പങ്കെ ടുത്തുവരുന്നു

ഇതേത്തുടർന്നാണ് ഈ ബൂത്തില്ലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി റീ പോളിംഗിന് നിർദ്ദേശം നൽകിയത്

ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച് ഫാനി ചുഴലിക്കാറ്റായി ശ്രീലങ്കൻ തീരത്തിന് പടിഞ്ഞാറായി നീങ്ങി വടക്കൻ തമിഴ്നാടിന്റെയും തെക്കൻ ആന്ധ്രാപ്രദേശിന്റെയും തീര ങ്ങളിൽ ചൊവ്വാഴ്ച വൈകീട്ടോടെ എത്തിച്ചേരാനിടയുണ്ട് കേരള തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതി നാൽ മത്സൃത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കാലാ വസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ആഴക്കടലിൽ മത്സ്യബന്ധനത്തിലേർപ്പെടുന്നവർ നാളെക്കകം തിരിച്ചെത്തണ മെന്ന കർശന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്

ശക്തമായ മഴക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം ഇടുക്കി തൃശൂർ മലപ്പുറം വയനാട് ജില്ലകളിൽ മറ്റന്നാളും കോട്ടയം എറണാകുളം ഇടു ക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലക ളിൽ ചൊവ്വാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വേനൽമഴ പെയ്തിട്ടും വരൾച്ചാപ്രശ്നം വിട്ടൊഴിയാതെ കോഴിക്കോട് ജില്ല മലയോരമേഖലയിൽ പലയിടത്തും രൂക്ഷമായ കുടിവെള്ളപ്രശ്നമാണ് നേരിടുന്നത് കട്ടിപ്പാറ അമ്പായത്തോട് കൂടരഞ്ഞി കാവിലുംപാറ കുന്നുമ്മൽ കായക്കൊടി നരിപ്പറ്റ ഓമശേരി തുടങ്ങിയ മലയോര മേഖലയിലാണ് ഭൂരിഭാഗ കിണറുകളും ജലാശയങ്ങളും വറ്റിയത് ഇവിടെ ലഭിച്ച വേനൽമഴ കൃഷിക്ക് ഗുണ്ട്കരമായെങ്കിലും കുടിവെള്ള സ്രോതസ്സുകളെ ചെറ്റൂരീതിയിൽപോലും സമ്പുഷ്ടമാക്കിയിട്ടില്ല

അതത് പഞ്ചായത്തുകളിലെ ജലസ്രോതസ്സ് ഉപയോഗിച്ചാണ് കിയോസ്കുകളിലൂടെ ജനങ്ങൾക്ക് കുടിവെള്ളം നൽകുന്നത് കേരളമടക്കം ഏഴ് സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും ഭീക രാക്രമണം ഉണ്ടാകുമെന്ന സന്ദേശം വൃാജമാണെന്ന് ബംഗളുരു പൊലീസ് അറിയിച്ചു വ്യാജ സന്ദേശം നൽകിയ ആളെ പൊലീസ് അറസ്റ്റ് ചെയ്തു ആവലഹളളി സ്വദേശിയും വിരമിച്ച സൈനിക നുമായ സ്വാമി സുന്ദരമൂർത്തിയാണ് അറസ്റ്റിലായത്

ബംഗളുരു പൊലീസ് ഇയാളെ ചോദൃം ചെയ്തുവ രുന്നു വ്യാജസന്ദേശം നൽകിയതിന് നേരത്തെയും സുന്ദരമൂർത്തി പിടിയിലായിരുന്നുവെന്ന് പൊലീസ് പറഞ്ഞു ഇയാൾ പറഞ്ഞ തെല്ലാം പരിശോധിച്ചുവരികയാണെന്ന് ബംഗളുരു റൂറൽ എസ് പി അറിയിച്ചു കേരളത്തിന് പുറമെ കർണാടക തമിഴ്നാട് ആന്ധ്രപ്രദേശ് തെലങ്കാന ഗോവ മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലും പുതു ച്ചേരിയിലും ഭീകരാക്രമണം നടത്തുമെന്നായിരുന്നു സന്ദേശം

ഫോൺവഴി കർണാടക ഡി ജി പി നീലമണി എൻ രാജു വിനാണ് ഇന്നലെ വൈകീട്ട് ഭീഷണി സന്ദേശം ലഭിച്ചത്

കൊല്ലപ്പെട്ടവരിൽ ആറു കുട്ടികളും മൂന്ന് സ്ത്രീകളും ഉൾപ്പെടും ശ്രീലങ്കൻ പൊലീസും സൈന്യവും സംയുക്തമായാണ് തിർച്ചിൽ നടത്തിയ ത്

പിന്നാലെ സ്ഫോടനങ്ങളുമുണ്ടായി

മസാല ്ബോണ്ടിൽ സി പി ഐ എം കേന്ദ്ര കമ്മറ്റിയുടെ നിലപാട് എന്തെന്ന് വൃക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു ബോണ്ടിൽ ഗവണ്മെന്റ് കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി തേടിയിരുന്നോയെന്ന് സിപിഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കയച്ച കത്തിൽ ചെന്നിത്തല ചോദിച്ചു കണ്ണൂരിൽ കള്ളവോട്ട് ചെയ്തവരെയും ഇതിന് കൂട്ടുനിന്ന ഉദ്യോഗസ്ഥരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ജില്ലാ കോൺഗ്രസ് കമ്മറ്റി പ്രസിഡണ്ട് സതീശൻ പാച്ചേനി പറഞ്ഞു സി പി ഐ എം വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു ബി ജെ പി വോട്ട് ചോർച്ചയുണ്ടായെന്ന എൽ ഡി എഫ് ആരോപണം പരാജയ ഭീതി കാരണമാണെന്ന് അദ്ദേഹം പറഞ്ഞു വിശ്വാസി സമൂഹത്തിന്റെയും ന്യൂനപക്ഷ സമൂഹത്തിന്റെയും വലിയ പിന്തുണ യു ഡി എഫിന് ലഭിച്ചിട്ടുണ്ടെന്നും പാച്ചേനി പറഞ്ഞു

സെർവർ പണിമുടക്കിയതിനെ തുടർന്ന് ആഗോളവ്യാപക മായി എയർ ഇന്ത്യ സർവീസുകൾ തടസ്സപ്പെട്ടു

ബോർഡിംഗ് പാസുകൾ എടുക്കാൻ സാധിക്കാ തിരുന്നതോടെയാണ് സെർവർ തകരാർ ശ്രദ്ധ്യിൽ പെട്ടത് ഇതേ തുടർന്ന് എയർ ഇന്ത്യയുടെ ആഭ്യന്തര രാജ്യാന്തര സർവീസു കൾ പലതും തടസ്സപ്പെട്ടു അഞ്ചര മണിക്കുറിന് ശേഷം സെർവർ തകരാർ പരിഹരിച്ചുവെങ്കിലും സർവീസുകൾ സാധാരണ നില യിലായിട്ടില്ല വൈകുന്നേരത്തോടെ മാത്രമേ സർവീസുകൾ പൂർണമായും പുനഃസ്ഥാപിക്കാനാവൂ എന്നാണ് വിവരം

ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ഏറ്റുമുട്ടും രാത്രി എട്ടിന് ജയ്പൂരിലാണ് മത്സരം

ഇതോടെ മുംബൈ പ്ലേഓഫ് സാധ്യത സജീവമാക്കി പാലക്കാട് തത്തമംഗലം അങ്ങാടി വേലയോടാനുബന്ധിച്ച കുതിരയോട്ടം ഉച്ചക്ക് നടക്കും ജില്ലയിലെ തമിഴ് തെലുങ്ക് വിഭാഗക്കാരാണ് കുതിരയോട്ട ചടങ്ങിന് നേതൃത്വം നൽകുന്നത്

കോട്ടയം ചരിത്രത്തിന്റെ ഭാഗമായ നാഗമ്പടം പഴയമേൽപ്പാലം അൽപ സ മയത്തിനകം പൊളിച്ചു നീക്കും നിയന്ത്രിത സ്ഫോടനത്തിലൂടെയാണ് പാലം തകർക്കുന്നത്

എംസി റോഡിലും നാഗ മ്പട റോഡിലും ഗുഡ്സ് റോഡിലും സ്ഫോടന സ്കുമയത്ത് റോഡ് ഗതാഗതം നിരോധിക്കും

മേൽപ്പാലം പൊളിക്കുന്നതിന് മുന്നോടിയായി കോട്ടയം വഴി ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്

പ ഹൃദയ ശസ്ത്രക്രിയക്കായി മംഗലാപൂരത്തും നിന്നും കൊച്ചി സ്വകാര്യ ആശുപത്രിയിലെത്തിലെത്തിച്ച കുഞ്ഞിന്റെ തുടർ ചികിത്സാ ചെലവുകളും ഗവണ്മെന്റ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു ആരോഗ്യ നിലയിൽ പുരോഗതിയുണ്ടെന്നും ദിവസങ്ങൾക്കകം കുഞ്ഞിന് ആശുപത്രി വിടാനാകുമെന്നും മന്ത്രി പറഞ്ഞൂ കൊച്ചിയിലെ ആശുപത്രിയിലെത്തി കുഞ്ഞിനെ സന്ദർശിച്ച ശേഷ്ഠ സംസാരിക്കുകയായിരുന്നു ശൈലജ പാലക്കാട് കഞ്ചിക്കോട് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഫ്രോറെസ്റ്റ് വാച്ചർ മോഹനന്റെ ആശ്രിതർക്ക് ഗവർണമെന്റ് ജോലി നൽകണമെന്ന് ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷൻ വി എസ് അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു ഇന്നലെയാണ് കാട്ടാനകളെ തുരത്തുന്നതിനി ടയിൽ വാച്ചർ കൊല്ലപ്പെട്ടത് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സ് ഫോടനത്തിൽ രണ്ട് പേർ കൊല്ലപ്പെട്ട ബത്തേരി നായ്ക്കെട്ടിയിലെ വീട്ടിൽ കോഴിക്കോടു നിന്നുള്ള ഫോറൻസിക് സംഘം പരിശോധന നടത്തും സ്ഫോടനത്തിൽ മരിച്ച പെരിങ്ങാട്ടേൽ ബെന്നിയുടെ ഫർണിച്ചർ കടയിൽ നിന്ന് ജലാറ്റിൻ സ്റ്റിക്കിന്റെ ഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു

എടപ്പറ്റ തറവാട്ടിൽ ഭുവനേശ്വരി മകൾ ദീപശ്രീ എന്നിവരാണ് മരിച്ചത് കൊല്ലം ഓച്ചിറ അഴീക്കൽ ബീച്ചിൽ കഴിഞ്ഞദിവസം തിരയിൽപ്പെട്ട് കാണാതായ രണ്ടാമത്തെ വിദ്യാർഥിയുടെ മൃതദേഹം കണ്ടെടുത്തു ഓച്ചിറ തയ്യിൽ വടക്കേത്തറയിൽ സച്ചിൻ പ്രഭാകരന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്

രാവിലെ പന്തിയിലെ ആനയ്ക്ക് തീറ്റ കൊടുക്കുന്നതിനിടെയാണ് പാപ്പാൻ ശ്രീജിത്തിന് പരിക്കേറ്റത് ആക്രമണത്തിൽ ശ്രീജിത്തിന്റെ ഉകെക്കും തോളിനും വാരിയെല്ലിനും പൊട്ടൽ സംഭവിച്ചിട്ടുണ്ട് പാറാവുകാർക്ക് ചായയിൽ മയക്കുമരുന്ന് നൽകി രക്ഷപ്പെടാൻ ശ്രമിച്ച മൂന്നു തടവുകാർ കണ്ണൂരിൽ പിടിയിലായി